പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖൃമന്ത്രിമാരുമായി ഇന്നും നാളെയും ആശയവിനിമയം നടത്തും

റാപ്പിഡ് ആന്റിജൻ പരിശോധന കിറ്റുകൾ കൂടി ഉപയോഗിക്കാൻ ഐ

വധിച്ചു ആയുധശേഖരവും പിടിച്ചെടുത്തു

മഹാമാരിയെ നേരിടുന്നതിന് രാജ്യം സ്വീകരിച്ച നടപടികളും പ്രതിരോധ പ്രവർത്തനങ്ങളും ശനിയാഴ്ച പ്രധാനമന്ത്രി ഉന്നതതല യോഗത്തിൽ വിലയിരുത്തിയിരുന്നു രാജൃത്ത് വിവിധ ഭാഗങ്ങളിൽ കോറോണ ബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയും സംസ്ഥാന് മുഖൃമന്ത്രിമാരുമായുള്ള ചർച്ച നിർണായകമാണ് മാർച്ചിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം ഇത് ആറാം തവണയാണ് പ്രധാനമന്ത്രി മുഖൃമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത്

ചില സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ അത് ലഭൃമാക്കുന്നതിനുള്ള സൌകരൃം ഒരുക്കാനാണ് നിർദ്ദേശം

കൂടുതൽ വിവരങ്ങളുമായി നീന്ദുന്

കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ പുതിയ രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ന് കുറവുണ്ട്

മരണസംഖ്യ നാലായിരം കവിഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സി എം ആർ

രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭൃന്തരമന്ത്രി അമിത് ഷായ്ക്കും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്കുമൊപ്പമുള്ള യോഗങ്ങളിൽ ശ്രീ സത്യേന്ദർ പങ്കെടുത്തിരുന്നു

അമേരിക്ക യു കെ യൂറോപ്യൻ യൂണിയൻ ഓസ്ട്രേലിയ കാനഡ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് മറ്റ് അംഗങ്ങൾ നിർമ്മിത ബുദ്ധിയുടെ ക്രമാനുഗതമായ വളർച്ചയ്ക്ക് ഓരോ രാജ്യവും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കും

ഐ ലക്ഷ്യമിടുന്നു

അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഡൽഹിയിലേക്കും കൊൽക്കത്തയിലേക്കും ഭുവനേശ്വറിലേക്കും മാലിയിൽ നിന്ന് വിമാനങ്ങൾ ഉണ്ട്

വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളുടെ മടക്കം ഏതാണ്ട് പൂർത്തിയായി വരുന്നതായി റെയിൽവേ ബോർഡ് ചെയർമാൻ വിനോദ്കുമാർ യാദവ് അറിയിച്ചു

മെക്സികോയിലും പാകിസ്ഥാനിലും മരണസംഖ്യയും രോഗബാധിതരുടെ എണ്ണവും ഉയരുകയാണ്

കോവിഡ് പടരുന്ന പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ നിയന്ത്രണങ്ങൾ ജൂൺ ദാ വരെ നീട്ടി

എ ഇ

കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പുവരെ ലോകത്ത് കോവിഡ് കേസുകൾ ഒരു ലക്ഷം വർദ്ധിക്കാൻ രണ്ട് മാസം എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം കൊണ്ടു തന്നെ ഒരു ലക്ഷത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായി ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തി

ന്റെയും സംയുക്ത സംഘം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മേഖലയീൽ തിരച്ചിൽ നടത്തുമ്പോഴായിരുന്നു സംഭവം

ഭീകരരെ തിരിച്ചറിഞ്ഞിട്ടില്ല